രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചരണം ഇന്ന് അവസാനിക്കും

ശബരിമലയിൽ കനത്ത സുരക്ഷ തുടരുന്നു

സെക്രട്ടറി കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബി ജെ

ജെ പി അദ്ധ്യക്ഷൻ അമിത് ഷാർയൂം ്കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്നലെ പ്രൊതുയോഗങ്ങളിൽ സംബന്ധിച്ചു

മദ്ധ്യപ്രദേശിലെ ബി ജെ

കോൺഗ്രസ്സ് മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കി

ജെ

മുൻ സംസ്ഥാന അദ്ധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവുമായ കൃഷൻ റെഡി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

സംസ്ഥാനത്ത് എത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒ

റാവത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ചീഫ് ഇലക്ട്രറൽ ഓഫീസർ ചീഫ് സെക്രട്ടറി സംസ്ഥാന്റ് പ്പോലീസ് മേധാവി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പള്കെടുത്തു സ്വതന്ത്ര്യവും നീതിപൂർവ്വവുമായ വോട്ടെടുപ്പ് നട്ടപ്പാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുത്തായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പിന്നീട് ജയ്പൂരിൽ വാർത്താ ലേഖകരെ അറിയിച്ചു അതിനിടെ മുതിർന്ന നേതാക്കളായ മുഖ്യമന്ത്രി വസുന്ധരാ രാജേ ഗ്രാമവികസന മന്ത്രി രാജേന്ദ്രാത്തോർ ഉന്നത വിദ്യാഭ്യാസമന്ത്രി കിരൺ മഹേശ്വരി തുടങ്ങിയവർ ഇന്നലെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു തിങ്കളാഴ്ചയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിനം അടുത്ത മാസം ഏഴിനാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്

ഒൻപത് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്

ജനുവരി എട്ട് വരെ സമ്മേളനം നീളുമെന്ന് ലോക്സഭാ സെക്രട്ടറിയേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ പാർലൂമെന്ററികാര്യ സമിതി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷത്യിൽ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിരുന്നു

രാഷ്ട്രപതി യായ ശേഷം ആസിയാൻ രാജ്യങ്ങളിലേക്കുള്ള ശ്രീ രാംനാഥ് കോവിന്ദിന്റെ പ്രഥമ സന്ദർശനമാണിത് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഓസ്ട്രേലിയ സന്ദർശിക്കുന്നതും ഇത് ആദ്യമായാണ്

ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ നിലയ്ക്കലിൽ നിന്ന് കസ്റ്റഡി യിൽ എടുത്തുതിൽ പ്രതിഷധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് ബി ജെ

സംസ്ഥാന പ്രസിഡന്റ് പി

സംഭവത്തിന്റെ ഗൌരവം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചതായും ശ്രീ

ജെ

പ്രവർത്തകർ ഇന്നലെ രാത്രി സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി

അറബികഥ ഗദ്ദാമ സുഡാനി ഫ്രം നൈജീരിയ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഷാനു സമദ് സംവിധാനം ചെയ്യുന്ന മൊഹബ്ബത്തിൽ കുഞ്ഞബ്ദ്ദുള്ള എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം

ഇതുവരെയുള്ള ഉപഗ്രഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യവും വിജയകരവുമായി നടന്നുവരുന്നതായി ഐ

ആർ ഒ ചെയർമാൻ കെ ശിവൻ പറഞ്ഞു

റ്വന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാ യിരുന്ന ഗിരീഷ് ചന്ദ്ര മുർവിനെ എക്സ്പൻഡിച്ചർ സെക്രട്ടറി യായും ഗവൺമെന്റ് നിയമിച്ചു നിലവിലെ ധനകാര്യ റവന്യൂ സെക്രട്ടറിയായ ഹസ്മുഖ് ആദിയ വിരമിക്കുന്ന ഒഴിവിലാണ് അജയ് ഭൂഷൻ പാണ്ഡയെ റവന്യൂ സെക്രട്ടറിയായി നിയമിച്ചത്

ദേശീയ പൌരത്വ രജിസ്റ്ററിൽ പേരുകൾ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികളുടെ പുരോഗതി വിലയിരുത്താനായിരുന്നു കൂടിക്കാഴ്ച സുപ്രീംകോടതിയുടെ നിർദ്ദേശ പ്രകാരം ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ കരട് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിച്ച് വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചതായി ശ്രീ

അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായും ശ്രീ

ജില്ലകളിലാണ് വ്യവസായ വളർച്ചാന്തരീക്ഷം രൂപപ്പെടുന്നത് എന്നതിനാൽ വ്യവസായ സൌഹൃദ നയങ്ങൾ ജില്ലാതലത്തിൽ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റെന്നും അദ്ദേഹം മുംബൈയിൽ അറിയിച്ചു

അടുത്തിടെ ഡറാഡൂണിൽ നിന്ന് ഡൽഹിയിലേയ്ക്ക് ജൈവ ഇന്ധനം ഉപയോഗിച്ച് വിമാനം വിജയകരമായി പറപ്പിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു

എന്നാൽ പൂർണമായും ജൈവ ഇന്ധനം ഉപയോഗിച്ച് വിമാനം പറപ്പിക്കാൻ കഴിയും ജൈവ ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് കർഷകരുടെ വരുമാനം വർദ്ധിക്കാൻ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു